ഡൽഹിയിൽ പ്രക്ഷോഭരംഗത്തുള്ള കർഷകസംഘടനക ളുമായി കേന്ദ്രസർക്കാർ ചർച്ച തുടരും

നേട്ടങ്ങളും പ്രഖ്യാപനങ്ങളുമായി എൽ ഡി എഫ് സർക്കാറിന്റെ അവസാന നയപ്രഖ്യാപനം

ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ കേന്ദ്രമന്ത്രിമാരായ നരേന്ദ്ര സിങ് തോമർ പീയുഷ് ഗോയൽ എന്നിവർ കർഷക സംഘടനകളുമായി ഇന്ന് നടത്തിയ എട്ടാംവട്ട ചർച്ചയിലാണ് തീരുമാനം കാർഷിക നിയമങ്ങളെ ക്കുറിച്ച് ചർച്ച നടത്തിയെങ്കിലും തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ലെന്ന് മന്ത്രി നരേന്ദ്ര സിംഗ് തോമർ മാധ്യമങ്ങളെ അറിയിച്ചു നിയമങ്ങൾ റദ്ദാക്കുന്നത് ഒഴികെ കർഷക യൂണിയനുകൾ നൽകുന്ന ഏത് നിർദേശങ്ങളും പരിഗണിക്കു മെന്നും മന്ത്രി പറഞ്ഞു നിയമങ്ങളെ പിന്തുണയ്ക്കുന്നവരും രാജൃത്തുണ്ട്

പ്രധാനമ ന്ത്രിയുടെ വസതിയിൽ നടന്ന് പൂർച്ചയിൽ ഇരുനേതാക്കളും ഉഭയകക്ഷി ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്തു

വിശദാംശങ്ങളുമായി പ്രിയ സുബ്ബലക്ഷ്മി വിദേശ ഇന്തൃക്കാർക്ക് ബന്ധപ്പെടാനും വിവിധമേഖലകളിൽ പ്രഗത്ഭരായവരെ ആദരിക്കുന്നതിനുമാണ് വിദേശകാര്യ മന്ത്രാലയം എല്ലാ വർഷവും ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്

ഇത്തവണമൂന്ന് ഘട്ടമായി നടത്തുന്ന പ്രവാസി സമ്മേളനത്തിൽ സുരിനാം പ്രസിഡന്റ് ചന്ദ്രിക പ്രസാദ് സന്തോക്കിയാണ് മുഖ്യാതിഥി ഉദ്ഘാടന സമ്മേളനത്തിനെ ത്തുടർന്ന് രണ്ട് പ്ലീനറി സമ്മേളനങ്ങളും നടക്കും ഭാരതത്തിന്റെ സ്വയംപര്യാപ്തയിൽ പ്രവാസി ഇന്ത്യാ ക്കാരുടെ പങ്ക് എന്ന ആദ്യ പ്തീനറി സമ്മേളനത്തിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രിയും വാണിജ്യ വ്യവസായ മന്ത്രിയും സംസാരിക്കും കോവിഡിന് ശേഷമുള്ള വെല്ലുവിളികൾ സംബന്ധിച്ച രണ്ടാമത്തെ പ്തീനറി സമ്മേളനത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രിയും വിദേശകാര്യ സഹമന്ത്രിയും അഭിസംബോധന ചെയ്യും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കോവിഡ് വാക്സിനെത്തുമ്പോൾ വിതരണം സുഗമമാക്കുന്നതിനായാണ് വിപുലമായ രീതിയിൽ രണ്ടാമതും ഡ്രൈ റൺ നടത്തിയത്

ക്ട്രോവീഡ് വാക്സിൻ എപ്പോൾ എത്തിയാലും എട്ടിയും വേഗം വിതരണം ചെയ്യാൻ സംസ്ഥാനം തയ്യാറാണ്ഡെന്റും മന്ത്രി വൃക്തമാക്കി

അടുത്തിടെ യു

അതിനിടെ സംസ്ഥാനത്തെ കോവിഡ് ബാധയെ കുറിച്ച് പരിശോധിക്കാൻ നിയോഗിച്ചു കേന്ദ്രസംഘം കൊച്ചിയിലെത്തി

ബ്രിട്ടനിൽ നിന്ന് എത്തിയവരാണ് ഇതിൽ ഭൂരിഭാഗ വും

അതിനിടെ കോവിഡ് മുക്തി നിരക്കിൽ ഇന്ത്യ ആഗോളതല ത്തിൽ മുന്നിൽ തുടരുകയാണ്

ഡി

ടൂറിസം മേഖലയിലെ ജീവനക്കാർക്കായി സഹകരണ ബാങ്കുകളുടെ സഹായത്തോടെ വായ്പാ പദ്ധതി നടപ്പിലാക്കുമെന്ന് സർക്കാറിന് വേണ്ടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമസഭയിൽ നടത്തിയ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞു

കോവിഡ് കാലത്ത് സംസ്ഥാനത്ത് ആരും പട്ടിണികിടക്കാതിരുന്നത് സർക്കാർ സൌജന്യറേഷൻ നൽകിയതു മൂലമാണെന്നും നയ പ്രഖ്യാപനം വൃക്തമാക്കുന്നു

രാവിലെ സഭ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധ വുമായി രംഗത്തെത്തിയിരുന്നു പിന്നീട് നയപ്രഖ്യാപന പ്രസംഗം ബഹിഷ്കരിച്ച് ഇറങ്ങി പോയ പ്രതിപക്ഷം സഭാ കവാടത്തിൽ കുത്തിയിരുപ്പ് സമരം നടത്തി

ലോക്ഡൌൺ കാലത്ത് കേന്ദ്രം സൌജ്ജന്യ റേഷൻ അനുവദിച്ചതുകൊണ്ടാണ് രാജ്യം പട്ടിണിയിൽ നിന്നും രക്ഷപെട്ടതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ

ആരെയും പട്ടിണിക്കിടാത്ത സർക്കാരാണെന്ന മുഖ്യമന്ത്രിയുടെ അവകാശവാദം കേന്ദ്രസർക്കാരിൻറെ നേട്ടമാണെന്നും അദ്ദേഹം വൃക്തമാക്കി

ആരോഗ്യനില പരിഗണിച്ചാണ് കേസിലെ അഞ്ചാം പ്രതിയായ ഇബ്രാഹിംകുഞ്ഞിന് ജാമൃം അനുവദിച്ചി രിക്കുന്നത്

അയ്യപ്പനെ കസ്റ്റംസ് അധികൃതർ ചോദ്യം ചെയ്തു ഇന്ന് രാവിലെയാണ് അയ്യപ്പൻ കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യലിനായി ഹാജരായത്

ഇതുവരെ കേരളം രാജസ്ഥാൻ മധ്യപ്രദേശ് ഹിമാചൽ പ്രദേശ് ഹരിയാന ഗുജറാത്ത് എന്നീ ആറ് സംസ്ഥാനങ്ങളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത് പക്ഷിപ്പ്നി ബാധിച്ച കേരളത്തിലെ രണ്ട് ജില്ലകളിലും ക്ക്രീന്ദ്സംഘം നാളെയും സന്ദർശനം നടത്തും

കെയിൽ നിന്നുള്ള ഒരു വിമാനം ഇന്ന് രാവിലെ ഡൽഹിയിൽ എത്തി

കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി പി

ഇ കിറ്റ നിർമാണത്തിൽ ലോകത്ത് രണ്ടാം സ്ഥാനത്തെത്താനും ഈ പദ്ധതികളിലൂടെ ഇന്ത്യക്ക് കഴിഞ്ഞു

സായുധസേനാ കാന്റീനുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിനായി സജ്ജീകരിച്ച ഓൺലൈൻ പോർട്ടലിന്റെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരു ന്നു അദ്ദേഹം